രാഷ്ട്രത്തിന് പാരദീപ് ഹാൽദിയ ദുർഗാപുർ പൈപ്പ് ലൈൻ പദ്ധതിയുടെ ദുർഗ്ഗാപൂർ ബാങ്ക ഭാഗവും കിഴക്കൻ ചമ്പാരൻ ബാങ്ക എന്നിവിടങ്ങളിലെ രണ്ട് എൽ പി ജി ബോട്ട്ലിംഗ് പ്താന്റുകളുമാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചത് ബീഹാറിന്റെയും ഇന്ത്യയുടെ കിഴക്കൻ മേഖലയുടെയും വികാസത്തിന് പെട്രോളിയം പ്രകൃതി വാതകരംഗവുമായി ബന്ധപ്പെട്ട വൃവസായങ്ങൾ ആക്കം കൂട്ടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പെട്രോ പദ്ധതികൾ നിരവധി പേർക്ക് തൊഴിലവസരം ഒരുക്കും പിഎം പാക്കേജിലൂടെ ബീഹാറിന്റ് അന്ുവദിച്ച പത്ത് പെട്രോളിയം പ്രകൃതി വാതക പദ്ധതിക്ളിൽ ഏഴെണ്ണം പൂർത്തിയാക്കാൻ സാധിച്ചതായും പ്രധാനമഞ്ഞു

ജി പ്ലാന്റുകളും

കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചു കൊണ്ടുള്ള സമ്മേളനം അടുത്തമാസം ഒന്ന് വരെ തുടരും കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

ആദ്യ ദിനമായ നാളെ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാജ്യസഭ രാവിലെയും ലോക്സഭ ഉച്ചയ്ക്കു ശേഷവും സമ്മേളിക്കും ചോദ്യോത്തരവേളയും സ്ഥകാര്യ ബിൽ അവതരണവും സമ്മേളനത്തിൽ ഉണ്ടായിരിക്കില്ല ശൂന്യവേളയിലും നിയന്ത്രണമുണ്ട് സമ്മേളന ദിനങ്ങൾക്കിടെ ഇടവേളകൾ ഉണ്ടായിരിക്കില്ല എന്നും രാജ്യസഭ ലോക്സഭാ സെക്രട്ടറിയേറ്റുകൾ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ വൃക്തമാക്കുന്നു

സമ്മേളനത്തിന് മുന്നോടിയായി എല്ലാ എംപി മാർക്കും കോപ്പിയ് പരിശോധന നടത്തും സാമൂഹിക അകലം പാലിച്ചു കൊണ്ട് എംപിമാർക്ക് ഇരിക്കാൻ ഇരുസഭകളുടെയും ഗാലറികൾ ഉൾപ്പെടെ ഉപയോഗിക്കും

ഇതേസമയം ഇന്ദ്രപ്രസ്ഥ എഫ്

ഗോൾഡ് എന്നീ ചാനലുകളിൽ ഹിന്ദി പരിപാടിയും പ്രക്ഷേപണം ചെയ്യും

തിരുവനന്തപുരം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചത്

മഹാരാഷ്ട്ര ആന്ധ്ര പ്രദേശ് കർണാടക തെലങ്കാന ഗുജറാത്ത് രാജസ്ഥാൻ മധ്യ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്രം ഈ നിർദേശം നൽകിയത്

സംവാദ് പ്പാറ്റ്ഫോമിലൂടെ സോഷ്യൽ മീഡിയയിൽ ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചാണ് വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വൃക്തമാക്കി വാക്സിൻ ഏറ്റവുമധികമായി ആവശ്യമുള്ളവർക്കാകും ആദ്യം വാക്സിൻ ലഭ്യമാക്കുകയെന്നും ആരോഗ്യ മന്ത്രി അറിയിച്ചു

ചികിത്സയിലുള്ളത്

കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണമായും പാലിച്ചാണ് പരീക്ഷ നടത്തിയത്

എന്നാൽ ഫെയ്സ് മാസ്കുകൾ പായ്ക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ശുചിത്വത്തിനായി പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇതിനായി വാഴനാര് കൊണ്ട് നിർമ്മിച്ച കടലാസ് കവറുകൾ കെവിഐസി രൂപകൽപ്പന ചെയ്തതായി എം എസ്എംഇ മന്ത്രാലയം അറിയിച്ചു

കോവിഡ് ബാധയെ തുടർന്നുള്ള സങ്കീർണ്തകൾ മൂലം ഒരാഴ്ചയായി ഡൽഹി എയിംസിൽ ചികിത്സയില്ലായിരുന്നു അടുത്തിടെയാണ് അദ്ദേഹം ആർജെഡിയിൽ നിന്ന് രാജിവെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബീഹാർ ഗവർണർ മുഖ്യമന്ത്രി എന്നിവരും രഘുവംശ പ്രസാദിന്റെ നിര്യാണത്തിൽ ദുഖം രേഖപ്പെടുത്തി

ശാസ്ത്രീയ സംഗീതജ്ഞരുടെ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കുന്നതാണ് ഈ ചിത്രം പുരസ് കാരനേട്ടത്തിൽ ചൈതന്യ തംഹാനെയെ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ അഭിനന്ദിച്ചു

ഇന്ന് പുലർച്ചെ രണ്ടര്യോടെയാണ് സിന്ധുപാൽചൌക്ക് ജില്ലയിലെ മൂന്നു ഗ്രാമങ്ങളില്പ്പേക്ക് ഒരു വലിയ മലയുടെ മുകൾ ഭാഗം അടർന്നു വീണത്

ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുട്രുകയാണ്